കഴിഞ്ഞ വർഷം ജലന്ധറിൽ പോലീസ് സ്റ്റേഷൻ അക്രമിക്കപ്പെട്ട സംഭവത്തിൽ രണ്ട് കാശ്മീർ സ്വദേശികൾക്കെതിരെ എൻ

ചരിത്രപ്രസിദ്ധമായ തൃശൂർപൂരത്തിന് ഇന്ന് കൊടിയേറും

എൽ ഒന്നാം ക്വാളിഫയർ മൽസരത്തിൽ ഇന്ന് ചെന്നൈയും മുംബൈയും പോരാട്ടം

കൂടുതൽ വിവരങ്ങളുമായി വി

തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരമനുസരിച്ച് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് പശ്ചിമബംഗാളിലാണ്

ഒറ്റപ്പെട്ട സംഭവങ്ങളൊഴിച്ചാൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു

ന്യൂസ്ഡസ്ക് ആകാശവാണി

ബാലാക്കോട്ട് വ്യോമാക്രമണം നടത്തിയ സൈനികർക്കുവേണ്ടി വോട്ട് ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു എന്നായിരുന്നു പരാതി

എസ് ഓഫീസറെ സ്ഥലം മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് സിർസ ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി സുനിതാ ദുഗ്ഗലിന്റെ ഭർത്താവ് രാജേഷ് ദുഗ്ഗലാണ് സ്ഥലംമാറ്റപ്പെട്ട ഐ

എസ് ഓഫീസർ കോൺഗ്രസ്സ് ജനനായക് ജനതാ പാർട്ടി എന്നീ പാർട്ടികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സിർസാ മണ്ഡലത്തിന് സമീപമുള്ള ഹിർസയിൽ സായുധ പോലീസ് കമാന്റൻറാണ് രാജേഷ് ദുഗ്ഗൽ

ട്രെയ്യിനുകളുടെ കാലതാമസം കാരണം ആണ് വിദ്യാർത്ഥികൾക്ക് പ്പരീക്ഷ എഴുതാൻ കഴിയാത്തത്

ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ യു എസ് വ്യാപാര പ്രതിനിധി തല യോഗത്തിന്റേതാണ് തീരുമാനം കേന്ദ്ര വാണിജ്യമന്ത്രി സുരേഷ് പ്രഭുവും അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി വിൽബർ റോസും ചടങ്ങിൽ അദ്ധ്യക്ഷരായി

ഡീ കമ്മീഷനിംഗ് ചടങ്ങിന്റെ ഭാഗമായി നാളിതുവരെ കപ്പലിന്റെ നെറുകയിൽ പാറി കളിച്ചിരുന്ന ദേശീയപതാക താഴ്ത്തിയതോടെ ഇന്ത്യൻ നാവികസേനയിലെ ചരിത്രപ്രധാനമായ ഒരു ജലയാനത്തിന്റെ സേവനത്തിനാണ് തിരശ്ശീല വീണത്

തൃശൂർ പൂരത്തിന്റെ ഭാഗമായി പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളുടെ കൊടിയേറ്റം ഇന്ന് നടക്കും

പൂർത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്

എൽ കിരീടപോരിൽ ഇനി നാല് മൽസരങ്ങൾ മാത്രം ഇന്ന് നടക്കുന്ന ഒന്നാം കാളിഫയർ മൽസരത്തിൽ ചെന്നൈയും മുംബൈയും ഏറ്റുമുട്ടും

നാളെ നടക്കുന്ന എലിമിനേഷൻ മൽസരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് സൺ റൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും ഇന്നത്തെ മൽസരത്തിൽ തോൽക്കുന്ന ടീമും നാളത്തെ എലിമിനേഷൻ മൽസരത്തിൽ ജയിക്കുന്ന ടീമും തമ്മിൽ പത്തിന് രണ്ടാം കാളിഫയർ നടക്കും

മൂന്ന് തവണ ചാമ്പ്യൻമാരായിട്ടുള്ള മുംബൈയും ചെന്നൈയും നാലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ന് മൽസര്ടിക്കാനിറങ്ങുന്നത് ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് ചെന്നൈയിലാണ് മിൽസരം ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് റംസാൻ ആശംസകൾ നേർന്നു സമൂഹത്തിൽ സന്തോഷവും കൂട്ടായ്മയും സാഹോദരൃവും ഊട്ടിയുറപ്പിക്കാൻ പുണ്യമാസം കാരണമാകട്ടേയെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു

എൽ

എസ് എൽ

എച്ച്

ജൂൺ ആദ്യവാരം ഫലം പ്രഖ്യാപിക്കും